ഗ്രീൻബുക്ക് മികച്ച ചിത്രം അൽഫോൺസോ ക്യൂറോൺ മികച്ച സംവിധായകൻ മികച്ച നടൻ റെമി മാലേക്ക് നടി ഒലീവിയാ കോൾമാൻ

പാർലമെന്റിന് ഇന്ന് സമാപനം

ന്യൂഡൽഹിയിൽ ഇന്ത്യാ ഗേറ്റിനും അമർ ജവാൻ ജ്യോതിക്കും സമീപം തയ്യാറാക്കിയിട്ടുള്ള ദേശീയ യുദ്ധ സ്മാരകം രാജ്യത്തിനുവേണ്ടി വീരമൃത്യുവരിച്ചവർക്കുള്ള നന്ദിയുടെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മൻ കി ബാത്തിൽ പറഞ്ഞിരുന്നു

വിവിധ രാജ്യങ്ങളിൽ സമാധാന ദൌത്യത്തിലും സായുധ കലാപങ്ങൾക്കെതിരെയുള്ള നീക്കത്തിലും പങ്കെടുത്ത സൈനികരേയും ദേശീയ യുദ്ധ സ്മാരകത്തിൽ സ്മരിക്കുന്നു

രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി രവിശങ്കർ പ്രസാദ് പീയൂഷ് ഗോയൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിതൃനാഥ് ഉൾപ്പെടെയുളള പ്രമുഖരും പങ്കെടുക്കും

ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും

വിദേശത്ത് അനധികൃതമായി സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്ന ആരോപണത്തിൻമേലാണ് റോബർട്ട് വാദ്രയ്ക്കെതിരെ കേസ് രാജസ്ഥാനിലെ ബിക്കാനീറിൽ ഭൂമി കുഭംകോണത്തിൽ പങ്കുണ്ടെന്ന ആരോപണവുമുണ്ട് രേഖകൾ നൽകുന്നതുവരെ ചോദ്യം ചെയ്യൽ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് റോബർട്ട് വാദ്ര നൽകിയ ഹർജി കോടതി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പരിഗണിക്കും

ഏപ്രിൽ പത്തിന് കേസിൽ വാദം കേൾക്കും

മാധ്യമങ്ങൾ പരമപ്രധാനമായ പങ്കാണ് വഹിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു

ജല അവാർഡുകൾ ജലസംഭരണ സംരക്ഷണ മേഖലയിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ കഴിയുമെന്നും ശ്രീ ഗഡ്കരി അഭിപ്രായപ്പെട്ടു

ഒരു റിപ്പോർട്ട്

നിർമ്മാണ മേഖലയിലുള്ളവർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് തീരുമാനമെന്ന് ദേശീയ റിയൽ എസ്റ്റേറ്റ് വികസന കൌൺസിൽ പ്രസിഡന്റ് നിരഞ്ജൻ ഹിരാനന്ദാനിയും അഭിപ്രായപ്പെട്ടു

കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജി എസ് ടി കൌൺസിൽ യോഗമാണ് നികുതി നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുത്തത്

ഏപ്രിൽ ഒന്നുമുതൽ പുതിയ് നികുതി നിരക്ക് നിലവിൽ വരും

സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

കേരള നിയമസഭ സംഘടിപ്പിച്ച വിദ്യാർത്ഥി പാർലമെന്റ് ശനിയാഴ്ചയാണ് ആരംഭിച്ചത്

ഭൂവനേശ്വറിലെ താരാബോയിയിൽ നൈപുണ്യ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖ്യ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും അതിനായി മികച്ച അടിസ്ഥാന സൌകര്യവും ഇല്ലെങ്കിൽ പുതിയ ഒഡീഷ എന്ന സ്വപ്നം സാക്ഷാൽക്കരിക്കാൻ കഴിയില്ലെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ എണ്ണ വാതക മേഖലയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കൈകോർത്തതായും ശ്രീ പ്രധാൻ പറഞ്ഞു

പോരൂറിൽ ഒഴിഞ്ഞ സ്ഥലത്ത്ടു കോൾ ടാക്സി കമ്പനിയുടെ കാറുകൾക്കാണ് തീപിടിച്ചത് പാർക്കിംഗ് ഗ്രൌണ്ടിന് സമീപത്തെ മാലിനൃ കൂമ്പാരത്തിൽ നിന്ന് തീ പടർന്ന് അപകടമുണ്ടായെന്നാണ് സൂചന അഗ്നി ശ്മനസേനാ വിഭാഗങ്ങൾ സ്ഥലത്തെത്തി തീയണച്ചു

പീറ്റർ ഫെരേലി സംവിധാനം ചെയ്ത ഗ്രീൻ ബുക്ക് ആണ് മികച്ചു ചിത്രം

ദി ഫേവറൈറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഒലീവിയ കോൾമാൻ മികച്ച നടിയായും മികച്ച നടനായി ബൊഹീമിയൻ റാപ്സഡിയിലെ റമി മാലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു വിശദാംശങ്ങളുമായി കൃഷ്ണ

മികച്ച വിദേശ ചിത്രം മികച്ചു കൃാമറ വിഭാഗത്തിലും റോമ യ്ക്ക് പുരസ്കാരം ലഭിച്ചു ബൊഹീമിയൻ റാപ്പ് സഡിക് നാലും ബ്ലാക്ക് പാന്തറിന് മൂന്നും പുരസ്കാരങ്ങൾ ലഭിച്ചു ഇന്ത്യ പശ്ചാത്തലമായി ചിത്രീകരിച്ച പീരീഡ് എൻഡ് ഓഫ് സെന്റൻസ് മികച്ചു ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമായി തെരഞ്ഞെടുക്കപ്പെട്ടു റൈക ഡെതാബ്ചി മെലിസ ബെർട്ടൻ എന്നിവർ ചേർന്നാണ് ഡോക്യൂമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത്

മികച്ച തിരക്കഥയ്ക്കുള്ള പൂരസ്കാരം ഗ്രീൻബുക്ക് സ്വന്തമാക്കിയപ്പോൾ മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ബ്ലാക്ക് ലാൻസ് മാൻ സ്വന്തമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിന്റെ ഉദ്ഘാടനം ഇന്നലെ അഫ്ശാന്ദിസ്ഥാനിലെ സരൻജ് പട്ടണത്തിൽ അഫ്ഗാനിസ്ഥാൻ പ്രസിഡ്ന്റ് അഷറഫ് ഗനി നിർവഹിച്ചു വ്യാപാര മേഖലയിൽ ഇന്ത്യയുടെയും ഇറാന്റേയും അഫ്ഗാനിസ്ഥാന്റേയും പരസ്പര സഹകരണമാണ് ഇതുവഴി സാധ്യമാകുന്നതെന്ന് അഫ്ഗാൻ പ്രസിഡന്റ് പറഞ്ഞു ചബഹാർ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചതോടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കയറ്റുമുതി രണ്ട് ലക്ഷം കോടി ഡോളറായി വർദ്ധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കാബൂളും ഇന്ത്യയും തമ്മിൽ വ്യോമമാർഗം വൃാപാരം ആരംഭിച്ചതോടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി നാല്പത് ശതമാനം വളർച്ച നേടിയതായി ഇന്തൃൻ അംബാസഡർ വിനയ് കുമാർ ചടങ്ങിൽ പറഞ്ഞു